തമിഴ്നാടിനും പിന്തുണ ഉറപ്പ് നീൽകി പ്രധാനമന്ത്രി

കർഷക പ്രതിനിധികളും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ന് നാലാം ഘട്ട ചർച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ

ത്തിലേറെ പേർ

കാൻബറയിൽ തുടക്കമാകും

ചുഴലിക്കാറ്റ് മാന്നാർ കടലിടുക്ക് കടന്ന് തെക്കൻ തമിഴ്നാട് തീരത്ത് പ്രവേശിക്കും

തമിഴ് നാട്ടിലെയും കേരളത്തിലെയും തീരദേശ ജില്ലകളിൽ കനത്ത ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ശനിയാഴ്ച വരെ തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ റെഡ് അലർട്ടും കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിശക്തമായ മഴയ്ക്കു സാധ്യത യുള്ളതിനാൽ പൊതുജനങ്ങളും അധികൃതരും അതീവ ജാഗ്രത പാലിക്കണം

കേന്ദ്രത്തിൽ നിന്നും സാധ്യമായ എല്ലാ സഹായങ്ങളും ഇരുസംസ്ഥാനങ്ങൾക്കും ഉറപ്പു നൽകിയതായും പ്രധാനമന്ത്രി ട്വിറ്ററിൽ ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളുടെ കുറിച്ചു

കേരളത്തിൽ കർശന ജാഗ്രതാ നിർദേശം നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഏഴ് ജില്ലകളിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകും

ചുഴലിക്കാറ്റ് സംബന്ധിച്ച് സംസ്ഥാനം സ്വീകരിച്ച നടപടികൾ പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

വോയ്സ് കേന്ദ്രവും കർഷകരും തമ്മിലുള്ള മൂന്നാംഘട്ട ചർച്ച ചൊവ്വാഴ്ച തീരുമാനമാകാതെ അവസാനിച്ചിരുന്നു കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ വാണിജ്യമന്ത്രി പിയൂഷ് ഗോയൽ വാണിജ്യസഹമന്ത്രി സോം പ്രകാശ് എന്നിവരാണ് കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ പങ്കെടുത്തത് കർഷക ക്ഷേമത്തിനായി സർക്കാർ പ്രതിജ്ഞാബദ്ധ മാണെന്നും കാർഷികവികസനത്തിന് മോദി സർക്കാർ എല്ലായ്പ്പോഴും മുൻഗണന നൽകുമെന്നും ശ്രീ

പുതിയ കാർഷിക പരിഷ്കരണ നിയമങ്ങൾ കർഷക താത്പര്യത്തിന് അനുസരിച്ചുള്ളതാണെന്ന് അദ്ദേഹം ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു രാജ്യത്തെ കർഷകരുടെ ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നിയമം കൊണ്ടുവ്ത്രുന്നത് ഈ നിയമങ്ങളോട് ഏതെങ്കിലും വിഭാഗത്തിന് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അവരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ് ജനങ്ങളുടെ നിത്യജീവിതത്തെ ക്ല്പാധിക്കുന്നതിനാൽ കർഷകർ പ്രതിഷേധം അവസാനിപ്പിക്കണമെന്നും കേന്ദ്രകൃഷിമന്ത്രി അഭൃർത്ഥിച്ചു ന്യൂസ്ഡെസ്ക് ആകാശവാണി

അമേരിക്കയിലെ അഫൈസർ കമ്പനിയും ജർമനിയിലെ ബയോൺ ടെക്കും ചേർന്ന് വികസിപ്പിച്ച വാക്സിൻ അടുത്തയാഴ്ച മുതൽപ്പിച്ചിതരണം ചെയ്യുമെന്ന് ആരോഗ്യവകുപ്പ് സെക്രട്ടറി മാറ്റ് ് ഹാൻകോക്ക് അറിയിച്ചു അരോഗ്യസംരക്ഷണ പ്രവർത്തക്ടർക്കും പരിചരണ കേന്ദ്രങ്ങളിൽ കഴിയുന്നവർക്കുമാണ് വാക്സിന്റേഷ്റ്റ് മുൻഗണന നൽകുക

സുരക്ഷാ് ഏജൻസികൾക്ക് ദേശീയ സുരക്ഷാ സാഹചര്യങ്ങളിൽ ഏകോപന സമീപനം ഉണ്ടാവണമെന്നും ഇന്ത്യയെ വികസിതവും സുരക്ഷിതവുമായ രാഷ്ട്രമാക്കി മാറ്റുകയെന്ന ലക്ഷ്യം കൈവരിക്കണമെന്നും ശ്രീ അമിത് ഷാ പറഞ്ഞു

ജി

ഐ ജി വാർഷിക യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്ചലായി യോഗത്തിൽ പങ്കെടുക്കുകയും മുൻപത്തെ സമ്മേളനത്തിന്റെ പ്രവർത്തന തീരുമാനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു കോവിഡ് പകർച്ചവ്യാധിയുടെ സമയത്തുള്ള പോലീസിന്റെ പങ്ക് സുരക്ഷ മാനദണ്ഡങ്ങൾ നടപ്പാക്കൽ എന്നീ വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി

സായുധസേന പതാകദിന നിധിയിലേക്കുള്ള സംഭാവനകളെ ആദായനികുതി പരിധിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പ്രത്യേക വിജ്ഞാപനത്തിലൂടെ ഒഴിവാക്കിയിട്ടുണ്ട്

പ്രമുഖ പരിശീലകൻ ബ്രഹ്മനായകം നയിക്കുന്ന പരിപാടിയിൽ ് അസോസിയേഷൻ ഓഫ് ഇന്റലെക്ചലി ഡിസേബിൾഡ് ച്ചെയർമാൻ ഫാദർ റോയ് മാത്യു വടക്കേൽ ആർ ഒ

പുതിയ വിദേശ വ്യാപാര നയത്തെക്കുറിച്ചും ആഭ്യന്തര ഉത്പാദനവും കയറ്റുമതിയും മുന്നോട്ടു കൊണ്ടുപോകുന്നതിന് സ്വീകരിക്കേണ്ട നടപ്ടികൾ സംബന്ധിച്ചും യോഗത്തിൽ ചർച്ചയായി സംസ്ഥാനങ്ങൾക്കൊപ്പം ചേർന്ന് ശക്തമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുക പരിവർത്തന നേട്ടങ്ങൾ കൈവരിക്കുക എന്നിവയാണ് നമ്മുടെ ലക്ഷ്യങ്ങളെന്ന് ശ്രീ ഗോയൽ പറഞ്ഞു

ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘം ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഐ

ഓസ്ട്രേയിൻ ടീമിനെ ആരോൺ ഫിഞ്ചും ഇന്ത്യൻ ടീമിനെ വിരാട് കോലിയും നയിക്കും